ഭീകരപ്രവർത്തകർ പൂതിയ തന്ത്രങ്ങൾ ആവിഷ്ക്കരിക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷാ സേനകൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ട് അഭിനന്ദനം

ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താനുദ്ദേശിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ സമവായം തേടി ദേവസ്വംബോർഡ് വിളിച്ച യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു

ചെയ്യാൻ ഉത്തർപ്രദേശ് മന്ത്രിസഭായോഗ തീരുമാനം

ഇക്കാര്യങ്ങൾ മുൻനിറുത്തി ദേശീയ സുരക്ഷാസേന കൂടുതൽ ശക്തിപ്പെടുത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു

ശക്തമായ ചെറുത്തുനില്പുകളാണ് രാജ്യത്തിന്റെ ഇതരഭാഗങ്ങളെ ഭീകരാക്രണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതെന്ന ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു

മനോധൈര്യമാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു

നരേന്ദ്രമോദി ആപ്പ് മൈ ഗവ് ഓപ്പൺ ഫോറം എന്നിവയിലൂടെ പൊതുജനങ്ങൾക്ക് അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെയ്ക്കാം

ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ

മാവോയിസ്റ്റുകളാണ് സംഭവത്തിനു പ്രിഗ്നിലെന്നാണ് നിഗമനം

എൽ

സുഭാഷ് ശിരോദ്കർ ദയാനന്ദ് സോപ്തേ എന്നിവരാണ് രാജി വച്ചത് കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയലിന്റെ സാന്നിദ്ധ്യത്തിൽ രണ്ടു പേരും ബിജെപിയിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചു

അതിനിടെ തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കാനിരിക്കെ യുവതീ പ്രവേശന വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ച സമവായ ചർച്ചയിൽ തീരുമാനമായില്ല കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

ഇക്കാര്യത്തിൽ ട് നിയമനിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നിയമ്ഠ ് കൈയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയിലേക്കുള്ള വിശ്വാസികളുടെ തടയരുതെന്നും അവർക്കാവശ്യമായ വാ്ഹനം സൌകര്യങ്ങൾ ഗവണ്മെന്റ് ഉറപ്പാക്കുമെന്നും ശ്രീ

അതിനിടെ സമവായ ചർച്ചയിൽ ബോർഡ് സ്വീകരിച്ച നിലപാട് തൃപ്തികരമല്ലെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാർ വർമ്മ പറഞ്ഞു ചർച്ച ഒരിക്കലും പൂർണ്ണ പരാജയമല്ലെന്നും ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയിൽ എന്ത് നിയമനടപടി സ്വീകരിക്കണമെന്ന വെള്ളിയാഴ്ച ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യുമെന്നും പ്രസിഡന്റ് എ

എന്നാൽ ശബരിമല പ്രശ്നം വഷളാക്കാനാണ് സംസ്ഥാന ഗവണ്മെന്റും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ്ചെന്നിത്തല ആരോപിച്ചു അതിനിടെ ശബരിമലയിൽ വരുന്ന യുവതികളെ സ്ഥിരമായി തടയാമെന്ന് കരുതേണ്ടെന്ന് എൽ

എഫ് കൺവീനർ എ

വിഷയം ചർച്ച ചെയ്യുന്നതിന് നിയമസഭയുടെ മലപ്പുറത്ത് അടിയന്തിരയോഗം വിളിച്ചു ചേർക്കണമെന്ന് മുതിർന്ന ബിജെപി നേതാവ് ഒ രാജഗോപാൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ നല്കിയ കത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ്ഡസക് ആകാശവാണി

നവകേരള നിർമ്മാണത്തിനായി ഗവൺമെന്റ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭായോഗത്തിനു ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനായി മുഖ്യമന്ത്രി ചെയർമാനായി ഉപദേശക സമിതിയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്

പുനർനിർമ്മാണ പ്രവർത്തിമങ്ങൾ ശാസ്ത്രീയമായും സമയബന്ധിതമായും വേഗത്തിലും പൂർത്തിയാക്കുമെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ മാത്രമായിരിക്കും എല്ലാ പദ്ധതികളും നടപ്പാക്കുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

വിവിധ ഗവൺമെന്റ് വകുപ്പുകളും ഏജൻസികളും നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ പോർട്ടലിൽ ഉണ്ടാകും

റെയിൽവേ ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും ബന്ധപ്പെട്ട രേഖകളിൽ മതിയായ തിരുത്തലുകൾ വരുത്താൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം സംസ്ഥാന ആരോഗ്യമന്ത്രി സിദ്ധാർത്ഥ് നാഥ്സിംഗ് അറിയിച്ചു

ശനിയാഴ്ച അലഹബാദ് സന്ദർശന വേളയിൽ നഗരത്തിന്റെ പ്രേര് സമവായം ഉണ്ടെങ്കിൽ പുനർനാമകരണം ചെയ്യുമെന്നും മുപ്പുമുന്തി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു

നാല് സ്ത്രീകളെയും ഒരു കുട്ടിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് ആസാറാം ബാപ്പൂവിന് ഹിസാർ കോടതി ശിക്ഷ വിധിച്ചത്

എല്ലാ പ്രതികളും ഓരോ ലക്ഷം രൂപ പിഴയടയ്ക്കാനും കോടതി നിർദ്ദേശിച്ചു